കേരളത്തിൽ ഇന്നലെ നേരിയു ആശ്ചാസം

രോഗബാധിതരേക്കാൾ ്ട്ര്യോഗമു്ക്തി നേടിയവരുടെ എണ്ണത്തിൽ വർദ്ധന

കേരളത്തിൽ കനത്ത മഴ തുടരുന്നു

ജില്ലകളിൽ ഇന്ന് റെഡ് അലെർട്ട്

അടിയന്തര സഹായം ലഭ്യമാക്കുമെന്ന് ഐകൃരാഷ്ട്രസഭ

മരണനിരക്ക് ക്രമാനുഗതമായി ക്കുറഞ്ഞുവരികയാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ അറിയിച്ചു ഇതുവരെ രണ്ട് കോടി കോവിഡ് പ്പ്രിശോധനകൾ നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

രോഗബാധിതരേക്കാൾ രോഗമുക്തി നേടിയവരുടെ എണ്ണത്തിൽ വർദ്ധന

മരണസംഖ്യ ഏഴു ലക്ഷം പിന്നിട്ടിരിക്കുകയാണ്

രോഗ ബാധിതരുടെ എണ്ണത്തിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ

ചൈനീസ് വിദേശകാരൃ മന്ത്രാലയ വക്താവ് ജമ്മു കശ്മീരിനെക്കുറിച്ച് അടുത്തിടെ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് അനുരാഗ് ശ്രീവാസ്തവയാണ് ഇക്കാര്യം അറിയിച്ചത്

ശിലാഫലകം അനാവർണം ചെയ്തശേഷം ശ്രീരാമജന്മഭൂമി ക്ഷേത്ര അനുസ്മരണ തപാൽസ്റ്റാമ്പ് പ്രധാനമന്ത്രി പ്രകാശനം ചെയ്തു

ഒരു ദേശത്തിന്റെ കഥ പ്രശസ്ത കൃതിയാണ്

എസ്

വിമാനത്താവളത്തിന്റെ സുരക്ഷ വർധിപ്പിക്കുന്നതിനു വേണ്ടിയാണ് നടപടി

ഐ എസ് എഫ് നിർവഹിക്കുന്നത്

വെള്ളപ്പൊക്കം മൂലമുണ്ടായ പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി ജില്ലാ ഭരണകൂടങ്ങളോട് ആവശ്യപ്പെട്ടു

എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്

കനത്ത മഴയിലും കാറ്റിലും വിവിധ ജില്ലകളിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി കൊല്ലത്ത് കിഴക്കേ കല്ലട മൺഡ്രോത്തു്രുത്ത് ഭാഗങ്ങളിൽ ഇന്നലെ രാത്രി വീശിയ ശക്തമായ ക്ടാറ്റിൽ പലയിടത്തും മരങ്ങൾ വീണു വ്യാപകമായ കൃഷ്ീണാ്ശം സംഭവിച്ചതായി റിപ്പോർട്ടുണ്ട്

ഇതിനെത്തുടർന്ന് കാഞ്ഞിരപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു

വൈദ്യുതി കമ്പികളിൽ മരംവീണ് ഗ്രാമീണ മേഖലകളിൽ ്വെദ്യുതി വിതരണവും നിലച്ചിരിക്കുകയാണ് വയനാട് ഇന്നലെ കനത്ത മഴയിൽ രണ്ട് കുഞ്ഞുങ്ങളുടെ ജീവൻ പൊലിഞ്ഞിരുന്നു കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്നും മീൻപിടുത്തതിന് കടലിലേയ്ക്ക് പോകരുതെന്ന് മുന്നറിയിപ്പ് ഉണ്ട് മലയോര മേഖലകളിൽ രാത്രിയാത്ര നിരോധിച്ചിട്ടുണ്ട്

ദുരിതാശ്വാസ കൃാമ്പുകൾ സന്ദർശിച്ച മുഖ്യമന്ത്രി ദർബംഗയിലെ ദുരിതബാധിതരെ കാണുകയും ചെയ്തു

ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കുന്ന പ്രളയബാധിതർക്ക് കോവിഡ് പരിശോധന നടത്താൻ അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി

ദർബംഗ മുസഫർപൂർ സമസ്തിപൂർ സീതാമർഹി ഗോപാൽഗഞ്ച് ഈസ്റ്റ് ചമ്പാരൻ സരൺ ജില്ലകളിൽ വെള്ളപ്പൊക്കം രൂക്ഷമാണ്

ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ സജീവമായി പുരോഗമിക്കുകയാണ്

തുറമുഖത്തുണ്ടായിരുന്ന യു എൻ മാരിടൈം ടാസ്ക് ഫോഴ്സ് കപ്പലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും നാവിക സമാധാന സേനാംഗങ്ങൾക്ക് പരിക്കേറ്റതായും വക്താവ് പറഞ്ഞു

സംസ്ഥാനത്ത് രണ്ടു ലക്ഷത്തോളം വഴിയോര കച്ചവടക്കാരാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആത്മനിർഭർ ഭാരത് പദ്ധതിയിലും ആത്മനിർഭർ ഗുജറാത്ത് പദ്ധതിയിലും ബാങ്കുകൾ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്തണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു